ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ശുഹൈബ് വധക്കേസിൽ മൂന്ന് സി

പ്രവർത്തകർകൂടി അറസ്റ്റിൽ പ്രതികൾ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുത്തു

എം സംസ്ഥാന സമ്മേളനം ഇന്ന് തൃശ്ശൂരിൽ സമാപി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻകിബാത്ത് പരിപാടി ഇന്ന്

ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കാർട്ടറിൽ കേരളം ഇന്ന് ഹരിയാനയെ നേരിടും ബോളിവു ഡ്താരം ശ്രീദേവി അന്തരിച്ചു ഹൃദയാ ഘാ ത്തെത്തുടർന്ന് രാത്രി വൈകി ദുബായിലായിരുന്നു അന്ത്യം

നാലാം വയസ്സിൽ തുണൈവൻ എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായാണ് അഭിനയരംഗത്തെത്തിയത് കഴി ഞ്ഞവർഷം പുറത്തിറങ്ങിയ മോം ആണ് അവസാനചിത്രം

ബോളിവുഡിലെ ആദ്യ സൂപ്പർസ്റ്റാർ എന്നാണ് അറിയപ്പെട്ടിരുന്ന ത് സഗ്മ തോഫാൻ ഹിമ്മത്ത് വാല മിസ്റ്റർ ഇന്ത്യ ജുദായി ചാന്ദിനി മാവാലി തുടങ്ങിയവ ശ്രീദേവി അഭിനയിച്ച പ്രമുഖ ചിത്രങ്ങളാണ്

പ്പൂമ്പാറ്റയിലൂടെ മലയാളത്തി ലെത്തിയ അവർക്ക് ആ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാര ത്തിന് നൽകുന്ന സംസ്ഥാന അവാർഡ് ലഭിച്ചു രണ്ട് സംസ്ഥാന ചല ച്ചിത്ര പുരസ്കാരങ്ങളും ആറ് ഫിലിംഫെയർ അവാർഡുകളും കിട്ടിയി ട്ടുണ്ട് അട്ടപ്പാടിയിലെ മധു കൊല്ലപ്പെട്ട കേസിൽ എട്ടുപേരെക്കൂടി അറസ്റ്റ് ചെയ്തു

ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കും പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മധുവിന്റെ മൃതദേഹം വൻ ജനക്കൂട്ടത്തിന്റെ സാനിധ്യത്തിൽ ഇന്നലെ വൈകിട്ട് സംസ്കരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ദേശീയ പട്ടികവർഗ്ഗ കമ്മീഷൻ ചെയർമാൻ നന്ദകുമാർ സായും സംഘവും നാളെ അട്ടപ്പാടി സന്ദർശിക്കും യൂത്ത് കോൺഗ്രസ് നേതാവ് ശുഹൈബ് വധക്കേസിൽ മൂന്നുപേ രെക്കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു എടയന്നൂരിലെ അസ്കർ തില്ലങ്കേ രിയിലെ അൻവർസാദത്ത് പാലയോട്ടെ അഖിൽ എന്നിവരാണ് അറസ്റ്റി ലായത് മൂന്നുപേരും സി

എം പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി അതിനിടെ പ്രതികൾ സഞ്ചരിച്ച കാർ പാപ്പിനിശ്ശേരിയിൽവെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു

ശുഹൈബിന്റെ കുടുംബത്തിന്റെ ആവശ്യമനുസരിച്ച അന്വേഷണം നടത്താൻ കേന്ദ്രഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ജോർജ്ജ് കുര്യൻ പറഞ്ഞു അതിനിടെ സി

ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ കണ്ണൂർ കളക്ടറേറ്റിനു മുന്നിൽ നടത്തുന്ന നിരാഹാരസമരം ഏഴാംദിവസത്തിലേക്ക് കടന്നു രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകരുടെ ഫോൺ പൊലിസ് ചോർത്തുന്നതിൽ ആശങ്ക അറിയിച്ച് കേരള പത്രപ്രവർത്തക യൂനിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന പൊലീസ് മേധാവിക്കും ഉത്തരമേഖലാ ഐ ജിക്കും പരാതി നൽകി അക്രമികൾക്കും കൊലപാതകികൾക്കും ഭരണകൂടവും പോലീസും ഒത്താശ ചെയ്യുന്നതിന്റെ ഫലമായാണ് കേരളത്തിലും ആൾക്കൂട്ട വിചാരണകളും കൊലപാതകങ്ങളും വർദ്ധിക്കുന്നതെന്ന് കെ

പ്രസിഡന്റ് എം

ഹസ്സൻ പറഞ്ഞും കോൺഗ്രസ്കൊല്ലം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എം സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ ഇന്ന് സമാപി ക്കും പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും പാർട്ടി സെക്രട്ടറിയെയും സമ്മേ ളനം തിരഞ്ഞെടുക്കും ഉച്ചകഴിഞ്ഞ് നഗരത്തിലെ നാല് കേന്ദ്രങ്ങ ളിൽനിന്ന് വൊളണ്ടിയർമാർച്ച് ആരംഭിക്കും ഹിന്ദുത്വ വർഗീയവാദി കൾക്കെതിരെ മതനിരപേക്ഷ ജനാധിപത്യശക്തികൾ ഒന്നിച്ച് അണിനിര ക്കണമെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നു കുട്ടി കൾക്കിടയിൽ വർഗീയത പ്രചരിപ്പിക്കാൻ സംഘപരിവാർ നടത്തുന്ന പരി ശ്രമങ്ങളെ ഗൌരവത്തോടെ കാണണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ധനമേഖലയിലെ പരിഷ്കാരങ്ങൾ കുത്തക താൽപര്യം സംരക്ഷിക്കാ നാണെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി

എഫിൽ ചർച്ച ചെയ്യാതെ മുന്നണി വിപുലീകരണം സാധ്യ മാകില്ലെന്ന് സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറ ഞ്ഞു മലപ്പുറത്ത് മാർച്ച് ഒന്ന് മുതൽ നടക്കുന്ന സി

ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കു കയായിരുന്നു അദ്ദേഹം നേരത്തെ എൽ

പോലെ വർഷങ്ങളായി എൽ

എഫിനെ സഹാ യിക്കുന്നവരെയും മുന്നണിയിൽ എടുക്കുന്നതിന് സി

ഐയ്ക്ക് എതിർപ്പില്ലെന്ന് കാനം പറഞ്ഞു

സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് അപകർഷതാ ബോധമാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ

കാനം കാനനവാസം കഴിഞ്ഞ് നാട്ടിലേക്കിറങ്ങിയാൽ കേരള കോൺഗ്രസിന്റെ ശക്തി മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു

തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ കേൾക്കാം

ദൂരദർശനും പരിപാടി സംപ്രേക്ഷണം ചെയ്യും രാത്രി എട്ടിന് പരിപാടിയുടെ പുനപ്രക്ഷേപണം ഉണ്ടാകും ഒമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് കണ്ണൂരിൽ ഇന്ന് തി രിതെളിയും കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിലും സംസ്ഥാന ചലച്ചി ത്ര അക്കാദമിയും ചേർന്നാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത്

സഞ്ജു സുരേന്ദ്രന്റെ ഏദൻ ഉദ് ഘാടന ചിത്രമായി വൈകീട്ട് പ്രദർശിപ്പിക്കും ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി ഹ്രസ്വസിനിമ വിഭാഗത്തിൽ മത്സരവും ഉണ്ടാവും വൈകു ന്നേരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും

നാളെ നടപ്പുവർഷത്തെ ബഡ്ജറ്റ് ഉപധനാഭ്യർത്ഥനകളുടെ ചർച്ചയും വോട്ടെടുപ്പും നടക്കും

കേപ്ടൌണിൽ നടന്ന നിർണായക മത്സ രത്തിൽ ഏഴ് റൺസിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത്

മൂന്നുമത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത്

കോഴിക്കോട്ട് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നട്ടക്കും പുരുഷ വനിത വിഭാഗ ങ്ങളിൽ കേരളം ഹരിയാനയുമായി മത്സരിക്കും പുരുഷ വിഭാഗത്തിൽ മറ്റു മത്സരങ്ങളിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശിനെയും സർവീസസ് പ ഞ്ചാബിനെയും റെയിൽവേസ് കർണാടകയെയും നേരിടും വനിതാ വിഭാഗത്തിൽ കർണാട്ടകയും റെയിൽവേസും വെസ്റ്റ് ബംഗാളും മഹാ രാഷ്ട്രയും തെലങ്കാനയും തമിഴ്നാടും തമ്മിലാണ് മത്സരം

ഫുഡ്ബോളിൽ ഡൽഹി ഡൈനാമോസിന് ജയം ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ മൂന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ ഡൈനാമോസ് തോൽപ്പിച്ചത് ഇക്കോഫ്രണ്ട്ലി കോഴിക്കോട് എന്ന സന്ദേശവുമായി കാലിക്കറ്റ് മാര ത്തൺ ആരംഭിച്ചു

പ്രകൃതി സൌഹൃദ അവബോധമുയർത്തുന്നതിന് ആരംഭിച്ച മാര ത്തണിന്റെ ഒമ്പതാമത് എഡിഷനാണ് ഇത്

ഫെസ്റ്റി വലിന്റെ ഭാഗമായി വ്യത്യസ്ത ആകൃതിയിലും നിറങ്ങളിലുമുള്ള നൂറുക ണക്കിന് പട്ടങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ ഇന്ന് പറത്തും ജനങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു കേന്ദ്ര മന്ത്രിയും മുസ്ലിംലീഗ് നേതാവുമായിരുന്ന ഇ

മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കോഴി ക്കോട് സംഘടിപ്പിച്ച ഇ അഹമ്മദിന്റെ ഒന്നാം ചരമവാർഷികദിനാചര ണത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ്ചെയ്തു ആളിയാർ കരാർപ്രകാരം ജലം ലഭ്യമാക്കാൻ ചർച്ചക്ക് തമിഴ്നാട് ജലക്രമീകരണ വിഭാഗം മേധാവി ്നന്നദ്ധത അറിയിച്ചതായി സംയുക്ത ജലക്രമീകരണ വിഭാഗം ജോയിന്റ് ഡയറക്ടർ പി

ഇന്നലെ നടന്ന പാലക്കാട് ജില്ലാ വികസനസമിതി യോഗത്തിലാണ് അദ്ദേഹം ഇക്കാരൃം അറിയിച്ചത് അതിനിടെ ജില്ലയുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ചരക്കു ലോറികൾ തടയുന്നത് പോലീസിടപെട്ട് അവസാനിപ്പിച്ചു വരുന്ന വേനൽക്കാലത്ത് കുടിവെള്ള ലഭൃത ഉറപ്പാക്കാൻ സാധൃ മായ നടപടികളെല്ലാം കൈക്കൊണ്ടതായി മന്ത്രി മാതൃ്യു ടി

പത്തനംതിട്ട മണിയാര കാർബറണ്ടം ജലവൈദ്യുത പദ്ധതിയുടെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ജലം പമ്പയിലേക്കും കാക്കാട്ട് ആറി ലേക്കും തുറന്നുവിടാൻ സാധൃതയുണ്ടെന്ന് പമ്പ ഇറിഗേഷൻ പ്രൊജക്ട് അധികൃതർ അറിയിച്ചു ഇരു നദികളുടെയും തീരങ്ങളിൽ താമസിക്കു ന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറഞ്ഞു

കഴിഞ്ഞ പത്തുവർഷത്തിനിടയിലുണ്ടായ വലിയ നഷ്ടമാണിത് എൻഡോസൾഫാൻ ദുരിത ബാധിതരുടെ വോട്ട് വാങ്ങി വിജയിച്ച വർക്ക് അവർക്കുവേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സ്ഥാനം ഒഴിയണമെന്ന് പരിസ്ഥിതി പ്രവർത്തക ദയാഭായി പറഞ്ഞു എൻഡോ സൾഫാൻ ദുരിതബാധിതർ കാഞ്ഞങ്ങാട്ട് എൻ എച്ച് എമ്മിനു കീഴിലെ ജില്ലാ പ്രോഗ്രാം മാനേജരുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അവർ ഇവിടെ പുനരധിവാസ കേന്ദ്രമല്ല പുന രധിവാസ ഗ്രാമംതന്നെ വേണമെന്നും ദയാഭായി പറഞ്ഞു കൊല്ലം പത്തനാപുരത്ത് പ്രവാസി സംരംഭകൻ സുഗതൻ ജീവനൊടുക്കിയ സംഭവത്തിൽ മരണത്തിന് ഉത്തരവാദികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കുന്നിക്കോട് പോലീസ സ്റ്റേഷൻ ഉപരോധിച്ചു സുഗതന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുമെന്ന് റൂറൽ എസ്

ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് ആലുവ മാറമ്പിള്ളി എം